ഫീസ് നിർബന്ധമായി ഈടാക്കരുതെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിർദേശം

സാഹചര്യങ്ങൾ ആർ

ഐ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും രാജ്യത്തെ സാമ്പത്തിക മേഖലയിലെ സ്ഥിതി ഗുരുതരമാണെന്നും ആർബിഐ ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു

ഐ ഗവർണർ പറഞ്ഞു

ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗ്രാമവികസന മന്ത്രി നരേന്ദ്ര സ്ട്രിംഗ് തോമർ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി കോവിഡ് ഭീഷ്ണീ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സാമൂഹ്യ അകലം പാലിച്ച് തൊഴിലുറപ്പ് പദ്ധതി പുനരാരംഭിക്കണമെന്ന് അദ്ദേഹം നിർദേശിച്ചു മുഖ്യമന്തി കേരളത്തിലും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള ജോലി ആരംഭിക്കാൻ മന്ത്രിസഭ അനുമതി നൽകി അഞ്ചിൽ കൂടുതൽ തൊഴിലാളികൾ ഒരു ടീമിൽ ഉണ്ടാകാത്ത രീതിയിലായിരിക്കണം ജോലി ക്രമീകരിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു രാജീവ് ഗൌബ ലോക്ക്ഡൌണിനെ തുടർന്ന് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെയും കുടിയേറ്റ തൊഴിലാളികളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബ ചീഫ് സെക്രട്ടറിമാരോട് ആവശ്യപ്പെട്ടു ഇവർക്ക് താമസം ഭക്ഷണം എന്നിവ ഉറപ്പാക്കാൻ എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകണം കുടിയേറ്റ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും ജില്ലാ കളക്ടർമാർ നോഡൽ ഓഫീസർമാരെ നിയമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

ലോക്ക്ഡൌൺ തുടരുന്ന സാഹചര്യത്തിൽ ചില സ്ഥാപനങ്ങൾ ഫീസ് നിർബന്ധപൂർവം ഈടാക്കുകയാണെന്ന എ

ടി യൂണിറ്റുകൾ ലോക്ക് ഡൌണിനെ തുടർന്നുണ്ടാ്യ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത്െ ്സോഫ്റ്റ് വെയർ ടെക്നോളജി പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന ചെറിയ ഐ ടി യൂണിറ്റുകളിൽ നിന്ന് നാല് മാസത്തെ വാടക ഈടാക്കേണ്ടെന്ന് കേന്ദ്രസർക്കാർ തീരുമാനം ഇത്തരം യൂണിറ്റുകളിൽ ഭൂരിഭാഗവും ഇടത്തരം സംരംഭങ്ങളോ സ്റ്റാർട്ടപ്പുകളോ ആണെന്നത് കണക്കിലെടുത്താണ് തീരുമാനം

ജി സിലിണ്ടറുകൾ വീതം അടുത്ത മൂന്നു മാസത്തേക്ക് സൌജന്യമായി നൽകാൻ കേന്ദ്രസർക്കാർ തീരുമാനിച്ചു

വിശുദ്ധ റമദാൻ വിശുദ്ധ റമദാൻ മാസത്തിൽ ലോക്ക്ഡൌണും സാമൂഹിക അകലവും നടപ്പാക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിയും കേന്ദ്ര വഖഫ് കൌൺസിൽ ചെയർമാനുമായ മുഖ്താർ അബ്ബാസ് നഖി വഖഫ് ബോർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് ഇക്കാര്യം നിർദേശിച്ചത് വിശ്വാസികൾ വീടുകളിൽ മതപരമായ അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും നിർവഹിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു

കോവിഡ് പ്രതിരോധത്തിനായി ചില ജില്ലകൾ സ്വീകരിച്ച നടപടികൾ ഫലപ്രദമായിരുന്നതായും മന്ത്രാലയം വൃക്തമാക്കി

ലോകാരോഗ്യ സംഘടന പ്രവർത്തകരുമായും ഫീൽഡ് ഓഫീസർമാരുമായും കേന്ദ്ര ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയതായി ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തെ നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ തീരുമാനമായതായും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു ഇതിനായി ലോകാരോഗൃ സംഘടനയുടെ ദേശീയ പോളിയോ നിരീക്ഷണ സംവിധാനത്തിന്റെ സഹായം തേടും

സി എം ആർ അറിയിച്ചു

എം

അമേരിക്കയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ്

എന്നാൽ ന്യൂയോർക്കിൽ രോഗതീവ്രത കുറയുന്നതായാണ് റിപ്പോർട്ട് പുതിയതായി ദ്രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്പിർുന്ന് കുറവ് ഇറ്റലിക്ക് ആശ്വാസം പകരുന്നതാണ്

സൌദി അറേബ്യയിലും യു എ ഇ യ്യിലു്ക് രോഗം ബാധിച്ചവരുടെ എണ്ണം അയ്യായിരം കവിഞ്ഞിട്ടുണ്ട്

എറണാകുളം ജില്ലയിൽ എയർപോർട്ട് ഡ്യൂട്ടിയ്ക്കിടെ രോഗം ബാധിച്ച രണ്ട് ആരോഗ്യ പ്രവർത്തകരുടേയും രോഗം ഭേദമായി

ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ച ഏഴുപേർ ഉൾപ്പെടെയാണിത്

രോഗബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള ജില്ലയിൽ കർശന നിയന്ത്രണങ്ങളാകും നടപ്പാക്കുക വിശദാംശങ്ങളുമായി ആകാശവാണി കാസർകോട് പ്രതിനിധി പി

കോഴിക്കോട് നിന്ന് ആകാശവാണി പ്രതിനിധി നസീർബാബുവിന്റെ റിപ്പോർട്ട്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ എൻ സി ജയചന്ദ്രൻ

കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളാണ് ആദ്യ മേഖലയിൽ വരുന്നത് ഈ ജില്ലകളിലെ തീവ്ര രോഗബാധാ ഹോട്ട്സ്പോട്ടുകൾ പ്രത്യേകമായി കണ്ടെത്തും അത്തരം ഗ്രാമങ്ങളുടെ അതിർത്തി അടച്ചിടും

ഭക്ഷ്യ സാധനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരാനും തിരിച്ചുപോകാനും ഓരോ പോയിന്റുകൾ മാത്രം തുറന്നുകൊടുക്കും

ആലപ്പുഴ തിരുവനന്തപുരം പാലക്കാട് തൃശൂർ വയനാട് ജില്ലകളെ ഉൾപ്പെടുത്തിയായിരിക്കും മൂന്നാം മേഖല കൊറോണ പോസിറ്റീവ് കേസുകളില്ലാത്ത കോട്ടയം ഇടുക്കി ജില്ലകളാണ് നാലാമത്തെ മേഖല

മേയ് മൂന്ന് വരെ കോസ് മറ്റിക്സ് ഉപയോഗിച്ചുള്ള സ്ന്ദ്ദർ്യവർദ്ധന സേവനങ്ങൾ ഇല്ലാതെ ബാർബർ ഷോപ്പുകൾ ശ്ന്നി ഞായർ ദിവസങ്ങളിൽ പ്രവർത്തിപ്പിക്കാം

രണ്ടിൽ കൂടുതൽ ആളുകൾ ഷോപ്പിൽ കാ ത്തിരിക്കാൻ പാടില്ല